ഉജ്ജല നേട്ടവുമായി ബി ജെ

ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച സമ്മതിദായകർക്ക് നന്ദി പറഞ്ഞ് ബി ജെ

സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം ജയിച്ച എൽ

ജെ പി വീണ്ടും അധികാരത്തിലേക്ക്

ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ

കേന്ദ്രത്തിൽ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സുസജ്ജമാണ്

വാരാണസിയിൽ നിന്ന് മൽസരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് ലക്ഷത്തി ഏഴുപത്തിഒൻപതിനായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത്

മൂന്നിടങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്

ജെ പി രണ്ടിടങ്ങളിൽ ലീഡ് ചെയ്യുന്നു

കോൺഗ്രസിന് റായ്ബറേലിയിൽ മാത്രമാണ് വിജയിക്കാനായത് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളിലും ബി ജെ

ഒരു സീറ്റിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഇവിടെ ശിവസേന ലീഡ് ചെയ്യുകയാണ്

ജെ

സി

ഗോവയിൽ ബി ജെ പിയും കോൺഗ്രസും ഓരോ സീറ്റുകൾ നേടി

ജെ പിയും വിജയിച്ചു

തൃണമൂൽ കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലും ബ്ലി

ജെ പി വൻഭൂരിപക്ഷത്തിൽ വിജയിച്ചു

ജെ പിയും ശിരോമണി അകാലിദളും വിജയിച്ചു

പി ഒരു സീറ്റ് നേടി

ജെ

ഛണ്ഡീഗഡിൽ കോൺഗ്രസിന്റെ പവൻകുമാർ ബൻസാലിനെതിരെ ബി ജെ പിയുടെ കിരൺ ഖേർ വിജയിച്ചു

നാലിടങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്

എസും നാലിടങ്ങളിൽ ബി

കെ വിജയിച്ചു

കെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ഏഴ് സീറ്റുകളിലും ക് സീ

ഐ സി

എം കെ ഡി എച്ച്ക എന്നിവർ ഓരോ സീറ്റ് ലീഡ് ചെയ്യുന്നു

എട്ട് സീറ്റുകളിൽ ബി

പിയും ഒരു സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്

ജെ

കോൺഗ്രസ് ഒരു സീറ്റിലാണ് വിജയിച്ചത്

പി വിജയിച്ചു

മധ്യപ്രേദശിൽ ബി ജെ

ഫലം പ്രഖ്യാപിക്കാനുള്ള ബാക്കി രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയാണ് മുന്നിൽ

ജെ പി തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി കോൺഗ്രസും ജെ ഡി

ജെ

ജമ്മുകാശ്മീരിൽ ആറ്റ് മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചു മൂന്ന് സീറ്റുകളിൽ ബി

ഒരു സീറ്റിൽ നാഷണൽ കോൺഫറൻസ് ലീഡ് ചെയ്യുകയാണ്

ജെ പി ഇതുവരെ ഏഴ് സീറ്റുകളിൽ വിജയിച്ചു കോൺഗ്രസ് മൂന്ന് സീറ്റുകൾ നേടി

ലോകനേതാക്കൾക്ക് ശ്രീ

പൊതുതിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി വർധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പി പാർല്ലൂമൻ്ററി ബോർഡ് പ്രമേയം പാസാക്കി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ വോയിസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ എൽ ഡി

ഡി

കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി

മാവേലിക്കര എറണാകുളം ചാലക്കുടി ആലത്തൂർ ഇടുക്കി പൊന്നാനി മലപ്പുറം കോഴിക്കോട് വയനാട് കൊല്ലം തൃശൂർ എന്നിവിടങ്ങളിൽ ഒറ്റ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഇത്തവണ എൽ ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞില്ല

ഡി എഫിന് ഉണ്ടായിരുന്നത്

ഡി

സംസ്ഥാനത്ത് ബി ജെ പി മുന്നിലെത്തിയത് നേമത്ത് മ്യാത്രം ഏഴിടത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി

ജെ പി രണ്ടാമതെത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാല മഞ്ചേശ്വരം വട്ടിയൂർക്കാവ് കോന്നി എറണാകുളം അരൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് വരുന്നത്

മാണി പി

അബ്ദുൾ റസാഖ് എന്നിവരുടെ നിര്യാണത്തെ തുടർന്നാണ് പാലയിലും മഞ്ചേശ്വരത്തും ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്

എസ്ഷ്ആർ കോൺഗ്രസ് മികച്ച വിജയം

ആദ്യ അലോട്ട്മെന്റിൽ രണ്ട് ലക്ഷത്തിലേറെ കുട്ടികൾക്കാണ് പ്രവേശനം

എറണാകുളത്തിനും കൊല്ലത്തിനുമിടയിൽ ഉള്ള എല്ലാ മെമു പാസഞ്ചർ സർവ്വീസുകളും റദ്ദാക്കിയിട്ടുണ്ട് മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റം വരുത്തി